രാജൃങ്ങളുടെ മന്ത്രിത്തല് സ്മ്മേളനം ന്യൂഡൽഹിയിൽ തുടങ്ങി

ശ്രീലങ്കയിൽ മുസ്തീം പള്ളികളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് സാമൂഹൃമാധൃമങ്ങൾക്ക് താൽക്കാലിക വിലക്ക്

സ്ത്രീകളും മുതിർന്ന പൌരന്മാരുമുൾപ്പെടെ വൻ ജനാവലി വോട്ട് രേഖപ്പെടുത്തിയതായി മുതിർന്ന തെരഞ്ഞെടുപ്പ് ഉപ കമ്മീഷണർ ഉമേഷ് സിൻഹ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഔദ്യോഗിക സന്ദർശനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ഒന്നിച്ച് നടത്തുന്നതിൽ നിന്ന് മന്ത്രിമാർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുളള ചട്ടം പ്രധാനമന്ത്രിക്ക് ബാധകമല്ലാത്തിനാൽ ഇത് സംബന്ധിച്ച പരാതി തളളിയതായി മുതിർന്ന ഡെപ്യൂട്ടി തൃെരുണ്ടെടുപ്പ് കമ്മീഷണർ സന്ദീപ് സക്സേന ന്യൂഡൽഹിയിൽ ് പ് മാധ്യമങ്ങളോട് പറഞ്ഞു

വിശദാംശങ്ങളുമായി അനിൽകുമാർ ഹോൾഡ് വോയിസ് ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഫിജി ജോർജിയ കെനിയ ദക്ഷിണകൊറിയ കിർഗിസ്ഥാൻ മലേഷ്യ മെക്സികോ മ്യാൻമർ റൊമാനിയ റഷ്യ ശ്രീലങ്ക യു

രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവും ദൃഢതയുമുളള തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യവേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തവും സുതാര്യവുമാക്കുന്നതിന് കൂടുതൽ നടപടികൾ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം അറിയിച്ചു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിൽകണ്ട് മനസിലാക്കുന്നതിന് വിദേശരാജൃങ്ങളിലെ പ്രതിനിധിസംഘങ്ങൾ എത്തിച്ചേർന്നത്ത് ശ്ലാഘനീയമാണെന്ന് ഔദ്യോഗിക വാർത്താകുറിപ്പിൽ അറിയിച്ചു

പുതിയ ജില്ലാ മജിസ്ട്രേട്ടായി മുക്ത ആര്യയെ നിയമിച്ച കമ്മീഷൻ ഇന്ന് തന്നെ അധികാരമേൽക്കാനും അവർക്ക് നിർദ്ദേശം നൽകി

ത്യണമുൽ കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്ന സമീപനമാണ് ഉമാശങ്കർ പിന്തുടർന്നതെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന ഏഴാം ഘട്ട വോട്ടെടുപ്പിന്റെ ഒരുക്കങ്ങൾ കൊൽക്കത്തയിൽ ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഉപ കമ്മീഷണർ സുദീപ് ജെയ്ൻ വിലയിരുത്തും

മന്ത്രിയുടെ പരാമർശത്തെ അപലപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലയളവിൽ പ്രസംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു

വ്യാപാര സംവിധാനത്തിൽ ബഹുമുഖ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് സമ്മേളനം എന്നതും ശ്രദ്ധേയമാണ് അംഗരാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തുടർ നടപടിക്കും സമ്മേളനം സഹായകമാകും

കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിവേക് ഭരദാജിന്റെ നേതൃത്വത്തിലുളള സംഘമാണ് ഇന്നലെ ഒഡിഷയിൽ എത്തിയത് രണ്ട് സംഘങ്ങളായി തിരിയുന്ന ഇവർ ഇന്നും നാളെയുമായി ചുഴലിക്കാറ്റ് വലിയ തോതിൽ ബാധിച്ച പുരി കുർദ ജില്ലകൾ സന്ദർശിക്കും ബുധനാഴ്ച സംസ്ഥാന ചീഫ് സെക്രട്ടറി എ

പതി ഉൾപ്പെടെയുള്ള മുതിർന്ന ഗവൺമെന്റ് അധികൃതരുമായി സംഘം ചർച്ചു നടത്തും കേന്ദ്ര ഊർജ്ജ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘവും ഇന്ന് ഒഡീഷ സന്ദർശിക്കും ഇരുസംഘങ്ങളും പിന്നീട് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും

ഉൾചേർന്ന വികസന ലക്ഷ്യമാണ് നമുക്ക് മുന്നിലുള്ളതെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി

ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവർ ഉൾപ്പെട്ട ബഞ്ചാണ് ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കുക ഐ എ എസ് ഐ പി എസ് നിയമനത്തിലെ നടപടിക്രമങ്ങൾ വീണ്ടും നടത്തണമെന്ന് ഹൈക്കോടതി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി അറ്റോർണി ജനറൽ തൂഷാർ മേത്ത കോടതിയെ ബോധിപ്പിച്ചു

കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ കേഡർവിന്യാസം അടുത്തിടെ അസാധുവാക്കുകയും പുതിയ നയത്തിന്റെയും ഹൈക്കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു

എന്നാൽ ഇന്ന് രാവിലെ ഒൻപ്പ് മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ നിരോധനാജ്ഞയിൽ ആദ് മണിക്കൂർ ഇളവുണ്ടാകും ബരാക് താഴ്വര മേഖലയിൽ പ്രഖ്യാപിച്ച ഇന്റർനെറ്റ് നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ നടന്ന അക്രമ സംഭവങ്ങളെ തുടർന്നാണ് ഹെയ്ലാക്കണ്ടിയിൽ വെള്ളിയാഴ്ച നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് അക്രമങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായുമാണ് സൂചന

വോയിസ് മാഡ്രിഡ് ഓപ്പൺ ട്രോഫി ടെന്നീസ് കിരീടം ലോക ഒന്നാം നമ്പർ താരം ജോവാക്ക് ജോക്കോവിച്ചിന് സെർബിയൻ താരത്തിന്റെ മൂന്നാം മാഡ്രിഡ് ട്രോഫി കിരീടമാണിത്

ഐപിഎൽ ക്രിക്കറ്റിൽ മു്ംബൈ ഇന്ത്യൻസ് ചാമ്പ്യൻമാരായി ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഒരു റണ്ണിന് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ പരാജയപ്പെടുത്തിയാണ് മുംബൈ കിരീടമണിഞ്ഞത്

തൃശൂർ പൂരം നേരിൽ കാണാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്

ശ്രീലങ്കയുടെ പലഭാഗ്ഗങ്ങളിൽ രാത്രികാല നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്

അഫ്ഗാൻസുരക്ഷാ സേനയ്ക്കായും പാക്കിസ്ഥാൻ സേനയ്ക്കായും നേരത്തെ വകയിരുത്തിയിരുന്ന തുകയാണിത് വിവിധ ഉറവിടങ്ങളിൽ നിന്നാണ് ഈ തുക കണ്ടെത്തിയിരിക്കുന്നതെന്ന് ആക്ടിംഗ് യു എസ് പ്രതിരോധ സെക്രട്ടറി പാട്രിക് ഷാനഹാൻ അറിയിച്ചു